ശ്രീധരൻ അധ്യ ക്ഷനായി ൂകേന്ദ്രം കമ്മിറ്റി രൂപീകരിച്ചു

മീനിൽ രാസവസ്തു ക്കൾ ചേർക്കുന്നവർക്കെതിരെ കർശനനടപടിയു ണ്ടാകുമെന്ന് മന്ത്രി കെ

ലോക കപ്പ് ഫുട്ബോളിൽ ഇന്ന് മൂന്ന് മത്സരങ്ങൾ

ലോകത്ത് ഏറ്റവും വലിയ നികുതി പരിഷ്കരണ പരിപാടിയായ ചരക്ക് സേവന നികുതി ഒറ്റ വർഷം കൊണ്ട് നടപ്പാക്കാനായത് ഇന്ത്യയിലെ ജന ങ്ങളുടെ സത്യസന്ധതയും സംസ്ഥാനങ്ങളുടെ തുറന്ന സമീപനവുംകൊ ണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നത് സംസ്ഥാനങ്ങളാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു നരേന്ദ്രമോദി

ഒരു രാജ്യം ഒരു നികുതി സമ്പ്രദായം നിലവിൽ വന്നതോടെ അതുവരെ നിലനിന്നിരുന്ന ഇൻസ്പെക്ടർ രാജിന് അവസാനമായെന്ന് പ്രധാനമ്പ്രി പറഞ്ഞു ആ സ്ഥാനത്ത് സത്യസന്ധതയും വിവരസാങ്കേതിക വിദ്യ്യും കടന്നു വന്നി രിക്കുകയാണ് നാലാമത് രാജ്യാന്തര യോഗാ ദിനം ലോകജനതയെ തന്നെ ഒന്നാക്കുന്ന കാഴ്ചയ്ക്ക് വേദിയായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ആഘോഷത്തിലൂടെ പരിപൂർണ്ണതയിലേക്ക് എത്തിയെന്നും അദ്ദേഹം വില യിരുത്തി സമൂഹത്തിന്റെ ആരോഗൃപരമായ നിലനിൽപ്പിന് ഡോക്ടർമാ രുടെ സംഭാവന നിസ്തൂലമാണ് വിപ്ലവകരമായ നേട്ടങ്ങൾക്കുപിന്നിൽ ഡോക്ടർമാരുടെ പങ്ക് എടുത്തുപറയേണ്ടതാണെന്ന് പ്രധാനമന്ത്രി അഭി പ്രായപ്പെട്ടു ചികിത്സിക്കുകമാത്രമല്ല സൌഖ്യം നൽകുകയെന്ന പ്രവൃ ത്തികൂടി ഡോക്ടർമാരുടെ സേവനത്തിൽ ഉൾപ്പെട്ടിരിക്കുകന്നതായി അദ്ദേഹം പറഞ്ഞു ജൂല്ലെ ഒന്നിന് ഡോക്ടേഴ്സ് ദിനത്തിൽ ഇക്കാര്യ ങ്ങൾ അംഗീകരിക്കുന്ന പരിപാടികൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കു ന്നുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു കേരളത്തിലെ റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനം ത്യ്യാറാവുന്നില്ലെന്ന കേന്ദ്ര പരാമർശം തെറ്റിദ്ധാരണ മൂല മാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ആകാശത്തുകൂടി ട്രെയിൻ ഓടിക്കാനാവില്ലെന്ന കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയലിന്റെ പരാമർശത്തോട് ന്യൂഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സത്യമറിയാമെങ്കിലും ആരോപണം ആവർത്തിക്കുന്നത് മറ്റു ചില ഉദ്ദേശത്തോടുകൂടിയാണെന്ന് ചിന്തിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറാവു പദ്ധതി ഉപേക്ഷിച്ചില്ലെന്ന് പറഞ്ഞതു കൊണ്ടു മാത്രമായില്ല ന്നില്ല

കേരളത്തിനെതിരെ എന്തും വിളിച്ചുപറയാമെന്ന വിചാരം കേന്ദ്രമന്ത്രി വെച്ചുപൂലർത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രി ജി

റെയിൽവേക്കാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെപോലെ തോന്നിയതരത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ കേരളത്തിലാവില്ലെന്നും സുധാകരൻ വിശദീകരിച്ചു രാജ്യത്തെ മെട്രോ റെയിൽ സംവിധാനങ്ങളുടെ മാനദണ്ഡങ്ങൾ തീരു മാനിക്കാൻ കേന്ദ്രഗവൺമെന്റ് പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചു

പ്രധാന മന്ത്രി കമ്മിറ്റി രൂപീകരിക്കാനെടുത്ത തീരുമാനത്തിന് അംഗീകാരം നൽകി

ആന്ധ്രയിൽനിന്ന് അരൂരിലെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന ചെമ്മീനിലാണ് വിഷാംശം കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാവകുപ്പിന്റെ സാഗർ റാണി നടപടിയുടെ ഭാഗമായി നടത്തിയി പരിശോധനയിലാണ് വിഷം കലർന്ന ചെമ്മീൻ പിടിച്ചെടുക്കുകയായിരുന്നു

മീനിൽ രാസവസ്തുക്കൾ ചേർത്ത് കൊണ്ടുവരുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാവുമെന്ന് മന്ത്രി കെ

ശൈലജ തിരുവനന്തപുരത്ത് പറഞ്ഞു

മീൻ കൊണ്ടുവന്ന അരൂരിലെ കമ്പനിക്കെ തിരെയും മീൻ അയച്ചു ആന്ധ്രയിലെ സ്ഥാപനത്തിനെതിരെയും നടപടി യെടുക്കുമെന്നും ശൈലജ അറിയിച്ചു സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ബുധനാഴ്ചവരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാവിഭാഗം മുന്നറിയിപ്പ് നൽകി

ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യതൊഴിലാളികൾ കേരള കർണ്ണാ ടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട നിയമനത്തിന് നീക്കം നടക്കുന്ന തായി മാധ്യമ റിപ്പോർട്ടുകൾ ്പറയുന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹി ക്കിൾ ഇൻസ്പെക്ടർ റാങ്ക് പട്ടികയിലെ എല്ലാവർക്കും നിയമനം നൽകാൻ ശ്രമിക്കു ന്ന തായാണ് ആരോ പണം

കേരള കോൺഗ്രസ് എം ലേക്ക് മടങ്ങുന്ന സാഹചരൃം നിലവിലി ല്ലെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ്ജ് പറഞ്ഞു

എഫുമായി നല്ല ധാരണയാണുള്ളതെന്നും യു

എഫിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാണി ഗ്രൂപ്പിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഫ്രാൻസിസ് ജോർജ്ജ് നിലപാട് വ്യക്തമാക്കി യത്

നിലവിൽ കോർപ്പറേറ്റ് ഉപദേഷ്ടാവും മസൂറി ഐ

അക്കാദമി ലാൽബഹദൂർ ശാസ്ത്രി ഫെലോയുമാണ് ചീഫ് സെക്രട്ടറി റാങ്കിൽ വിരമിച്ച അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അണുശക്തി വകുപ്പിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ വൈസ് ചാൻസലൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽബോഡിയോഗം കൊച്ചിയിൽ ചേരുന്നു അടുത്ത പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുക്കും നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡ ണ്ടായി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് അമ്മയിൽ നിന്ന് പുറത്താക്കിയ ദിലീ പിനെ സംഘടനയിൽ തിരിച്ചെടുക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്തേ ക്കും

ഇന്ന് പനമയെ തോൽപ്പിക്കാനായാൽ ഇംഗ്ലണ്ടിന് പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാനാവും ആദ്യ മത്സരങ്ങളിൽ തോറ്റ പോളണ്ടിനും കൊളംബി യയ്ക്കും ഇന്നത്തെ മത്സരം നിർണ്ണായകമാണ് തോൽക്കുന്ന ടീം പുറ ത്താവും പോളണ്ടിനെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ചതിന്റെ ആവേശ ത്തിലാണ് സെനഗൽ ഇന്ന് ജപ്പാനെ നേരിടാനിറങ്ങുന്നത് ഇന്ന് ജയിച്ച് പ്രീ കാർട്ടർ ബർത്ത് ഉറപ്പിക്കാൻ സെനഗലിന് കനത്ത പോരാട്ടം തന്നെ വേണ്ടിവരും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി കാർട്ടൂൺ ക്ലബ് ഓഫ് കേരള മലപ്പുറം പ്രസ് ക്ലബ്ബുമായി ചേർന്ന് ഫുട്ബോൾ കാരിക്കേ ച്ചർ പ്രദർശനം ആരംഭിച്ചു മുപ്പത് കാർട്ടൂണിസ്റ്റുകൾ വരച്ച ഫുട്ബോൾ ഇതിഹാസങ്ങളുടേതടക്കം നൂറിലധികം കാരിക്കേച്ചറുകളാണ് പ്രദർശിപ്പി ക്കുന്നത്

അയർകുന്നം സ്വദേശി ദിനു അലക്സിന്റെ മൃതദേഹമാണ് മീനച്ചി ലാറിൽ ഇല്ലിക്കൽ പാലത്തിനു സമീപം രാവിലെ കരയ്ക്കടിഞ്ഞത് വ്യാഴാ ഴ്ചത്തെ അർജന്റീന ക്രൊയേഷ്യ മത്സരത്തിൽ അർജന്റീനയുടെ തോൽവിയോടെയാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ച് ഇയാൾ അപ്ര തൃക്ഷനായത് മെസ്സിയുടെ കടുത്ത ആരാധകനായിരുന്നു ദിനു കഴു ത്തിലെ മാലയിൽനിന്നാണ് മൃതദേഹം ദിനുവിന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് സംസ്ഥാനത്തെ മെഡിക്കൽ എൻജിനീയറിംഗ് പ്രവേശനത്തിന് കേന്ദ്രീകൃത അലോട്ട്മെന്റ് നട്പടി ആരംഭിച്ചു

ശനിയാഴ്ചയാണ് ആദ്യ അലോട്ട്മെന്റ് ബുധനാഴ്ച ട്രയൽ അലോട്മെന്റ് പ്രസിദ്ധീകരിക്കും

ആർകിടെക്ചർ ഫാർമസി അനുബന്ധകോഴ്സുകൾ എന്നിവയിലേക്കും പ്രവേശന നടപടികൾ ഇതോടൊപ്പം നടക്കും ഓപ്ഷൻ നൽകാത്തവരെ അലോട്ട്മെന്റിന് പരിഗണിക്കില്ല സംസ്ഥാനത്ത് പോളിടെക്നിക് പ്രവേശനത്തിന് നാളെ ട്രയൽ അലോ ട്മെന്റ് പ്രസിദ്ധീകരിക്കും പരാതികളുണ്ടെങ്കിൽ അറിയിക്കാനും ഓപ്ഷ നുകൾ ഭാഗികമായോ പൂർണ്ണമായോ മാറ്റുന്നതിന് വ്യാഴാഴ്ച വരെ അവ സരമുണ്ട് ശനിയാഴ്ച അവസാന റാങ്ക് ലിസ്റ്റും ആദ്യ അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും ത്രിതല പഞ്ചായത്തുകളുടെ വികസനമുന്നേ റ്റത്തിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗ സ്ഥരുടെയും യോജിച്ച പ്രവർത്തനം അനിവാര്യ മാണൈന്ന് മന്ത്രി എം

പി എസ് സി ഓഫീസിന് കൊല്ലത്ത് സ്വന്തം ആസ്ഥാനമന്ദിരം നിർമ്മിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കേരള പി എസ് സി എംപ്പോയിസ് യൂണിയൻ ജില്ലാ സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സംസ്ഥാന ഹജ്ജ് കമ്മറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്ക് വാക്സി നേഷൻ നല്കുന്നതിന് മെഡിക്കൽ ക്യാമ്പുകൾ അടുത്തമാസം ആരംഭി ക്കും

എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മി നിസ്ട്രേറ്ററായി പാലക്കാട് രൂപത ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് ചുമതലയേറ്റു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയിയിരുന്നു നേരത്തെ അഡ്മിനിസ്ട്രേറ്റർ മാർ ആലഞ്ചേരിയും ചടങ്ങിൽ പങ്കെടുത്തു ശബരിമലയിലെ ലെയ്സൺ ഓഫീസർ നിയമനം ദേവസ്വം ബോർഡ് റദ്ദാക്കി അയ്യപ്പ സേവാസംഘം പ്രതിനിധിയായ രാജഗോപാലിന്റെ നിയ മനമാണ് റദ്ദാക്കിയത് ദേവസ്വം ബോർഡിന്റെ നിയമനത്തിൽ ഗവൺമെന്റ് അതൃപ്തി അറിയിച്ചിരുന്നു പത്തനംതിട്ടയിലെ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ അടുത്തകാലങ്ങളിൽ കണ്ടെത്തിയ അജ്ഞാത മൃത ദേഹങ്ങൾ പരിശോധിക്കാൻ പൊലീസ് നീക്കം ആരംഭിച്ചു കർണ്ണാടക തമിഴ്നാട് ഗോവ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കണ്ടെ ത്തിയ മൃതദ്ദേഹങ്ങൾ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ സഹായ ത്തോടെ പരിശോധിക്കും